എട്ട് എം പിമാർ പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധം തുടരുന്നു

വരെ രാജ്യസഭ ബഹ്ലിഷ്ക്ക്രിക്കുമെന്ന് പ്രതിപക്ഷം കോവിഡ് രോശ്മുക്തിയിൽ രാജ്യം ഒന്നാമതെത്തി

മൂന്നാം ഘട്ട വാക്സിൻ പരീക്ഷണം പുനഃരാരംഭിച്ചു

കൂടുതൽ പേർ രോഗമുക്തി നേടി

മുന്നറിയിപ്പ് നീരൊഴുക്ക് കൂടിയ അണക്കെട്ടുകളിലെ ഷട്ടറുകൾ ഉയർത്തിത്തുടങ്ങി ഐ

ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം

രാഗേഷ് എളമരം കരീം എന്നിവരുൾപ്പെടെ എട്ട് എം

പാർലമെന്റ് വളപ്പിലെ ഗാന്ധിപ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്ന ഇവരെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ സന്ദർശിച്ചു എട്ട് എം പി മാരുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ പ്രതിപക്ഷം രാജൃസഭ ബഹിഷ്ക്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു അതിനിടെ രാജ്യസഭാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് സന്തോഷത്തോടെയല്ലെന്ന് സഭാ അദ്ധ്യക്ഷൻ എം

അംഗങ്ങളുടെ പെരുമാറ്റം കാരണമാണ് നടപടി എടുക്കേണ്ടി വന്നുക്ക്ന് അദ്ദേഹം രാജ്യസഭയിൽ വൃക്തമാക്കി

പ്രതിപ്ക്ഷ നടപടിയിൽ ആശങ്ക അറിയിച്ചാണ് തീരുമാനമെന്നുംഅദ്ദേഹം കൂട്ടിച്ചേർത്തു

ഐ എം പ്രതിനിധികളായ എളമരം കരീമും കെ കെ രാഗേഷും ഉൾപ്പെടെയുള്ള എം പി മാരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെതിരെ പാർട്ടി ഇന്ന് സംസ്ഥാന വൃാപകമായി പ്രതിഷേധിക്കും കോവിഡ് മാനദണ്ഡം പാലിച്ച് വൈകിട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി ഘടകങ്ങളോട് ആവശ്യപ്പെട്ടു

കോവിഡ് രോഗചികിത്സയ്ക്ക് ഓക്സിജൻ ആവശ്യ ഘടകമായ സാഹചര്യത്തിലാണ് നടപടി വാഹന പരിശോധന സംസ്ഥാനത്ത് ഇ പോസ് യന്ത്രം ഉപയോഗിച്ചുള്ള പോലീസിന്റെ വാഹന പരിശോധന ഇന്ന് മുതൽ കോവിഡ് പശ്ചാത്തലത്തിൽ രേഖകൾ നേരിട്ട് പരിശോധിക്കാതെ നിയമലംഘനങ്ങളുടെ ഫോട്ടോ സഹിതമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലീസിൽ കറൻസി രഹിത പ്രവർത്തനത്തിലേ ക്കുള്ള ആദ്യപടിയാണ് ഇ പോസ് സംവിധാനം ഉപയോഗിച്ചുള്ള വാഹന പരിശോധന

പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൂന്നാം ഘട്ട വാക്സിൻ പരീക്ഷണമാണ് പുനഃരാരംഭിച്ചത്

നേരത്തെ വാക്സിന് പാർശ്വഫലം കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷണം നിർത്തിവച്ചിരുന്നു ബ്രിട്ടണിൽ നടത്തിയ പരീക്ഷണത്തിലാണ് വാക്സിന് പാർശ്വഫലം കണ്ടെത്തിയത്

നഗരസഭ പരിശോധന കോവിഡ് വ്യാപനം രൂക്ഷമായ സ്ാഫ്ച്ര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ പരിധിയിലെ കടകളിലു് ഹോട്ടലുകളിലും ആരോഗ്യ വിഭാഗം പരിശോധന കർശ്നുമാക്കി കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലായിടത്തും പാലിക്കു്ന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തുകയാണ് ലക്ഷ്യം

അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചരൃത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള കളക്ടർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചത്

പുനലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർക്ക് കൊവിഡ് സ്ഥിരീകരിച്ച സാഹചരൃത്തിൽ എസ്

സ്റ്റേഷൻ അണുവിമുക്തമാക്കിയശേഷം പ്രവർത്തിച്ചു തുടങ്ങി

ശസ്ത്രക്രിയയ്ക്കു ശേഷം സമർപ്പിക്കുന്നു ബില്ലുകളിൽ സാങ്കേതിക സമിതിയുടെയും തീരുമാന്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ധനസഹായും അനുവദിക്കുകയെന്ന് മന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി

ഒൻപത് ജില്ലകളിൽ നേരത്തെ പ്രഖ്യാപിച്ചു ഓറഞ്ച് ജാഗ്രത പിൻവലിച്ചു മഴ ശക്തമാകാൻ സാധൃതയുള്ള കാസറഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത തുടരും കേരള കർണാടക ലക്ഷദ്വീപ് തീര മേഖലയിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും മൂന്നര മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയുണ്ടാകാനും സാധൃതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം മീൻ പിടിക്കുന്നവർ ഈ മേഖലയിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്

തിരുവനന്തപുരത്ത് പേപ്പാറ നെയ്യാർ ഡാമുകളുടെ ഷട്ടറുകൾ രാവിലെ അഞ്ച് സെന്റീമീറ്റർ കൂടി ഉയർത്തി

ഷോളയാർ കല്ലാർകുട്ടി കുങ്ങള പെരിങ്ങൽക്കുത്ത് ലോവർ പെരിയാർ മൂഴിയാർ പൊന്മുടി ഇരട്ടയാർ ബാണാസുര അണക്കെട്ടുകളിൽ ജലനിരപ്പ് അപകട നിലയിലേക്ക് എത്തിയതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു

മഴ ഇന്നുമുതൽ കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം

സ്രായികാട് സ്വദേശിയാണ് മരിച്ചത്

കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരമുള്ള വിലക്ക് ലംഘിച്ച് മീൻപിടിക്കാൻ പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്

ഡി എഫ് പ്രവർത്തകർ ഇന്ന് സെക്രട്ടറിയേറ്റിനും ജില്ലാ കളക്ട്രേറ്റുകൾക്കും മുന്നിൽ സത്യാഗ്രഹം നടത്തുന്നു സെക്രട്ടറിയേറ്റിന് മുന്നിലെ സത്യാഗ്രഹം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു

ഐ എം കേന്ദ്ര നേതൃത്വവും സ്വർണക്കള്ളക്കടത്തിന്റെ പങ്ക് പറ്റുന്നവരായതിനാലാണ് ജലീലിനെ സംരക്ഷിക്കുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന അദ്ധ്യക്ഷൻ സി

ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കുമെന്നും നാളെ മുതൽ യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിക്കുമെന്നും പ്രഫുൽ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു